സാമൂഹൃ മാധൃമങ്ങളെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയമിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ

അധികൃതരുടെ നടപടിയെ സ്പാഗ്ഗത്ം ചെയ്യുന്നതായി ഇന്തൃ

കമ്മീഷനുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നിയമാവലിയും തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മീഡിയ സർട്ടിഫിക്കേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി തേടണമെന്ന വ്യവസ്ഥ എല്ലാ സാമൂഹ്യ മാധ്യമ പ്രതിനിധികളും അംഗീകരിച്ചു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇന്റർനെറ്റ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ നിയമാവലി ഇന്നലെ ന്യൂഡൽഹിയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ്പ് കമ്മീഷണർ സുനിൽ അറോറയ്ക്ക് കൈമാറി തിരഞ്ഞുട്ടു്പ്പ് പ്രക്രിയ സ്വതന്ത്രവും സുതാര്യവുമായി നടത്തുക പ്രിൻ ് ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമാവലിക്ക് രൂപം നൽക്ടിയിരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഓൺലൈൻ പ്രചാരങ്ങ്ത്തിനുള്ള നിയമാവലി നടപ്പാക്കാൻ വിവിധ ഇന്റർനെറ്റ് സ്ഥാപനങ്ങൾ സ്വമേധയാ മുന്നോട്ട് വരുന്നത്

ഖാർഹോങ്കർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്കായി പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ടു വച്ചു സമൂഹ മാധ്യമങ്ങൾ വഴി തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും വൃക്തമാക്കണമെന്നാണ് നിർദ്ദേശം

ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ നിരീക്ഷിക്കാൻ സാങ്കേതിക വിദഗ്ദ്ധരെ നിരീക്ഷണ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു തെറ്റായ രീതിയിൽ അക്കൌണ്ടുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വേണ്ട നിയമ നടപടി സ്വീകരിക്കാൻ നൽകിയിട്ടുണ്ടെന്നും തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു

നിരവ് മോദിയെ അറസ്റ്റ് ചെയ്യാൻ വെസ്റ്റ് മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത് തുടർ നടപടികൾ ്യൂസ്സ്ംബന്ധിച്ച് ബ്രിട്ടീഷ് അധികൃതരുമായി ഇന്ത്യ നിരന്തമൂട് ബ്ലന്ധപ്പെട്ട് വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്തിമവ് ്രവീഷ് കുമാർ അറിയിച്ചു നീരവിനെ എത്രയും പ്രൂപ്പേഗം ഇന്ത്യയിലെത്തിക്കാനാണ് ശ്രമിക്കുന്നത്

എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്നലെ ഇയാളെ അറസ്റ്റ് ചെയ്തത്

ഇന്ത്യൻ കോടതി നിയമങ്ങൾ സുതാര്യമാണെന്നും കേസിൽ പാകിസ്ഥാൻ നിസ്സഹകരണപരമായ നിലപാടാണ് കൈക്കൊണ്ടതെന്നും ശ്രീ

മുംബൈ ഭീകരാക്രമണത്തിന്റെ തെളിവുകൾ പാകിസ്ഥാന് കൈമാറിയ സാഹചര്യത്തിൽ കേസിന്റെ വാദം ഉടൻ ആരംഭിക്കണമെന്ന് അദ്ദേഹം സമൻസിൽ പറഞ്ഞു പത്താൻകോട്ട് വ്യോമത്താവള ആക്രമണ കേസിലും പുൽവാമ ഭീകരാക്രമണ കേസിലും പുരോഗതിയില്ലാത്തിൽ ഇന്ത്യയുടെ അതൃപ്തിയും പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്

രാജ്യത്തെമ്പാടുമുള്ള സുരക്ഷാ ഉദ്ദ്യൃാഗ്സ്ഥരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പൂ ബലാക്കോട്ടിലാണ് ആക്രമണം നടത്തിയതെങ്കിലും ഇന്ത്യയിലെ ചില ആളുകൾക്കാണ് വേദനയുണ്ടായതെന്നൂക്ട് പ്രിയാനമന്ത്രി പറഞ്ഞു ജീവൻ പണയം വച്ച് വീര്യത്തോടെ പോരാടുന്ന ഇന്ത്യൻ സൈന്യത്തിൽ രാജ്യത്തെ ജനങ്ങൾ അഭിമാനം കൊള്ളേണ്ടതുണ്ട് കാവൽക്കാരെ കുറിച്ച് നിക്ഷിപ്ത താല്പര്യങ്ങൾ വച്ച് അടുത്തിടെ ചിലർ തെറ്റിദ്ധാരണ ജനകമായ വാർത്ത പ്രചരിപ്പിച്ചതായും ശ്രീ

എ ഗവൺമെന്റ് കർഷകർക്കായും പാവപ്പെട്ടവർക്കായും കൊണ്ടുവന്ന വിവിധ പദ്ധതികളും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

അഗർത്തലയിലെ ഖുമുൽവാങ്ങിൽ പൊതു റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് അതിന്റെ പൂർവ്വ ശക്തിയിൽ തിരിച്ചുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു സാധാരണക്കാർക്ക് അടിസ്ഥാന വേതനം ലഭിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് രാഹുൽഗാന്ധി പറഞ്ഞു നോട്ട് പിൻവലിക്കൽ കാർഷിക കടം എഴുതിത്തള്ളാതിരിക്കൽ തൊഴിലില്ലായ്മ എന്നീ പ്രശ്നങ്ങൾ കാരണം ജനം വലഞ്ഞിരിക്കുകയാണെന്നും രാഹുൽഗാന്ധി പറഞ്ഞു

ജമ്മുവിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദും നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ളയുമാണ് ഇക്കാര്യം വൃക്തമാക്കിയത് ജമ്മു ഉധംപൂർ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ ശ്രീനഗറിൽ നാഷണൽ കോൺഫറൻസ് മത്സരിക്കും അനന്ത് നാഗ് ബാരാമുള്ള മണ്ഡലങ്ങളിൽ സൌഹൃദ മത്സരമായിരിക്കും

ഫറൂഖ് അബ്ദുള്ള പ്രതിനിധീകരിക്കുന്ന മണ്ഡലമായ ശ്രീനഗറിൽ അദ്ദേഹം സഖ്യസ്ഥാനാർത്ഥിയായി മത്സരിക്കും അതേസമയം സഖ്യനീക്കം അവസരവാദപരവും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കവുമാണെന്ന് ബിജെപി വക്താവ് ബ്രിഗേഡിയർ അനിൽ ഗുപ്ത പ്രതികരിച്ചു

വിശദാംശങ്ങളുമായി നന്ദകുമാർ

തിന്മയുടെ മേൽ നന്മയ്ക്കുള്ള വിജയം സൂചിപ്പിക്കുന്ന ആഘോഷം കൂടിയാണ് ഹോളി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു എന്നിവർ ജനങ്ങൾക്ക് ഹോളി ആശംസകൾ നേർന്നു നിറങ്ങളുടെ ഉത്സവം നമ്മുടെ സമൂഹത്തിലും സന്തോഷത്തിന്റെ നിറം പകരട്ടെ എന്ന് രാഷ്ട്രപതി ആശംസിച്ചു സന്തോഷവും സാഹോദര്യവും പ്രകടിപ്പിക്കാനുളള അവസരമാണ് ഹോളി ഒരുക്കുന്നതെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

മെട്രോ ബസ് സർവ്വീസ്ടുകളും ഉച്ചയ്ക്ക് രണ്ടു മണിമുതൽ ഉണ്ടായിരിക്കുന്നതല്ല

രാത്രി അത്താഴ പൂജക്ക് ശേഷം ഹരിവരാസനം പാടി നട അടയ്ക്കും

എസ്സും കേരള കോൺഗ്രസ് പി സി തോമസ് വിഭാഗവുമായുളള ബി ജെ പിയുടെ ലോക്സഭാ സീറ്റ് വിഭജനം പൂർത്തിയായി

ജെ

ഡി ജെ എസ് അഞ്ച് മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസ് ഒരു സീറ്റിലുമാണ് മത്സരിക്കുക പാർട്ടി ജനറൽ സെക്രട്ടറി മുരളിധർറാവു ന്യൂഡൽഹിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം

സി പി മുൻപ് എം പി രഞ്ജിത് സിങ്ങ് മൊഹീന്ദ പാട്ടീൽ ബി ജെ പികയിൽ ചേർന്നു മുതിർന്ന എൻ സി പി നേതാവും പാർട്ടി എം

മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്രി ഫ്ട്നാവിസിന്റെ സാന്നിധൃത്തിലാണ് ബി ജെ

കോൺഗ്രസും എൻ സി പി യും തമ്മിൽ സഖ്യമായതോടെ ബി ജെ പി യിലേയ്ക്ക് ചേക്കേറുന്ന നേതാക്കളുടെ എണ്ണം വർദ്ധിക്കുകയാണ്

എ

രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണിത്

കായിക പ്രതിഭകളും പരിശീലകരും ഉൾപ്പെട്ട മാർച്ച് പാസ്റ്റോടെ ഈ വർഷത്തെ സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് ഗെയിംസിന് തിരശീല വീണു

ജെ ഡി എം പി യും എം

കന്തമാലിലെ എം പി പ്രത്യുഷ രാജേശ്വരി സിങ്ങും ദസ്പല്ലയിലെ എം

എ പൂർണ ചന്ദ്രനായിക്കുമാണ് പാർട്ടിയിൽ നിന്ന് രാജിവച്ചത്